ഇന്ത്യൻ റെയിൽവേയിൽ പാരാ മെഡിക്കൽ വിഭാഗങ്ങളിലേക്കുള്ള വൻ റിക്രൂട്ട്മെന്റ് യജ്ഞത്തിന് ഇന്ന് തുടക്കം

കേരളത്തിൽ കനത്ത മഴ തുടരുന്നു പൂഞ്ഞാറിൽ ഉരുൾപൊട്ടി

ഇന്തോനേഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസ് കാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ പി വി സിന്ധു ജപ്പാന്റെ നസോമി ഒകുഹാരെയെ നേരിടും

ഇന്നലെ മുഖ്യമന്ത്രി എച്ച്

പി വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് തയാറാകാതെ ഭരണപക്ഷം ചർച്ച ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു

എ മാരെക്കൂടാതെ കോൺഗ്രസ് എം

എ

നാഗേന്ദ്ര ബി

മഹേഷ് ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചു കെ

അംഗം ആർ

ഇതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരക്ക് വിശ്വാസവോട്ട് തേടണമെന്ന് ഗവർണർ വാജുബായി വാല സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും നിർദേശം നൽകിയിരുന്നു

ജെ പി സംഘം നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ സ്പീക്കർക്ക് ആദ്യം നിർദ്ദേശം നൽകിയത്

ജെ പി നേതാവ് ബി എസ് യെദ്യൂരപ്പ പറഞ്ഞത്

ഡി എസ് കോൺഗ്രസ് സഖ്യം ഗവൺമെന്റ് രൂപീകരിച്ചത്

രണ്ടു കക്ഷികളുടെ കൂടി പിന്തുണയോടെ ബി ജെ

സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കരുതെന്ന സ്പീക്കർ ഓംബിർളയുടെ നിർദ്ദേശത്തിൽ പ്രകോപിതരായാണ് കോൺഗ്രസ്സ് പ്രതിഷേധം തുടങ്ങിയത് വിഷയം ഉന്നയിക്കാൻ അവസരം നൽകാമെന്ന് സ്പീക്കർ നിലപാടെടുത്തോടെ കോൺഗ്രസ്സ് അംഗങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു

ഇന്ത്യയ്ക്ക് ഒരു അഭയാർത്ഥി തലസ്ഥാനമായി മാറാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ചൻ ഗൊഗോയ് അധ്യക്ഷനായ അപ്പെക്സ് കോടതിക്ക് മുമ്പാകെ കേന്ദ്രം അറിയിച്ചു തദ്ദേശീയമായ ഓഫീസർമാരുടെ ഇടപെടലിനെ തുടർന്ന് ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് പൌരത്വ രജിസ്റ്ററിൽ തെറ്റായി കടന്നുകൂടിയിട്ടുള്ളതെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു

വിയന്ന ഉടമ്പടി പ്രകാരമുള്ള നയതന്ത്ര പരിരക്ഷയ്ക്ക് താൻ അർഹനാണെന്ന് കാണിച്ച് കുൽഭൂഷൺ ജാദവ് നേരത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദിച്ചിരുന്നു

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച സീറ്റ് നഷ്ടത്തെ തുടർന്ന് ഈ പാർട്ടികൾ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്ന അവസ്ഥയിലാണ്

ഈ മൂന്ന് പാർട്ടികൾക്ക് പുറമേ ബി ജെ പി കോൺഗ്രസ്സ് സി പി ഐ എം ബി എസ് പി മേഘാലയ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവരാണ് രാജ്യത്തെ നിലവിലെ ദേശീയ പാർട്ടികൾ

കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളിൽ തീരമേഖലകളിലും ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലുമാണ് കാരൃമായ മഴ ലഭിച്ചത്

തിരുവനന്തപുരം ജില്ലയിൽ മലയോരമേഖലയിൽ ഇന്നലെ മുതൽ നല്ല മഴ ലഭിച്ചു

തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ തീരദേശമേഖലയിൽ കടൽ പ്രക്ഷുബ്ദമാണ്

പ്രളയജലം ഇറങ്ങിയ മേഖലകളിൽ ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്

രോഗബാധ കണക്കിലെടുത്ത് പ്രളയബാധിത മേഖലകളിൽ കൂടുതൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങിയതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്തു

റോഡുകളും പാലങ്ങളും തകർന്നതിന് പുറമേ ഹെക്ടർ കണക്കിന് ഭൂമിയിലെ കാർഷിക വിളകളും നശിച്ചു

തന്റെ ആശയങ്ങളും ചിന്തകളും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന മൻ കി ബാത്തി ലേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആഹാനം ചെയ്തു

ഇതിന്റെ ആദ്യപടിയായി സംസ്ഥാന ഗവൺമെന്റ് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ആകാശത്ത് നിന്ന് മരുന്നുകൾ എന്ന പദ്ധതി ആരംഭിച്ചു

നേരത്തെ ദുബായിലേക്ക് കടന്ന മൻസൂർഖാർ തിരികെ ഡൽഹിയിൽ എത്തയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്

വൈക്കോയുടെ അപ്പീൽ ഹർജിയിൽ ജസ്റ്റിസ് പി

ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം അലൻ ഡൊണാൾഡ് വനിതാ ക്രിക്കറ്റ് താരം കാതറിൻ ഫിറ്റ്സ്പാട്രിക് എന്നിവരേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഇങ്ങനെ ആദരിച്ചതിലൂടെ ക്രിക്കറ്റ് താരങ്ങളുടെ സംഭാവനകൾ തലമുറകളോളം പ്രക്രീർത്തിക്കപ്പെടുമെന്ന് സച്ചിൻ തെണ്ടുൽക്കർ അഭിപ്രായപ്പെട്ടു രണ്ടര പതിറ്റാണ്ടോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നതിന് പിന്തുണ നൽകിയ കോച്ചിനേയും കുടുംബത്തേയും സച്ചിൻ നന്ദി അറിയിച്ചു

ഐ സി സി യുടെ ഭരണഘടന ലംഘിച്ചതിനാണ് ടീമിനെ സസ്പെന്റ് ചെയ്തത് തുടർന്ന് ടീമിനുള്ള ധനസഹായവും മരവിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും സിംബാബ്വേ ക്രിക്കറ്റ് ടീമിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്

ഇരു രാജ്യങ്ങളിലേയും സാമ്പത്തിക വാണിജ്യ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഇതിനായി പ്രത്യേക സമിതിക്കും രൂപം നൽകും